പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക്

രൂക്ഷമായ എട്ട് സംസ്ഥാനങ്ങളില്ല് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തൂന്നു

അസ്ഥാനത്ത് ചികിത്സയിലുള്ളത്

മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു

ഇബ്രാഹിംകുഞ്ഞിനെ വിജിലൻസ് കസ്റ്റഡിയിൽ വിടാനാവില്ലെന്ന് കോടതി

എസ്

ചെന്നൈയിൻ എഫ് സി യെ നേരിടും

വാർഡുകളിൽ മത്സരചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു മൂന്നു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം സ്വതന്ത്രരും വോട്ടർമാരെ നേരിട്ട് കാണുന്ന തിരക്കിലാണ്

ആക്ക സ്ഥാനാർഥികളിൽ വനിതകളാണ് കൂടുതൽ

കണ്ണൂർ കോർപ്പറേഷനിൽ ഭിന്നലിംഗ വിഭാഗത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയും ജനവിധി തേടും

വാക്സിൻ വിതരണത്തിന്റെ മുൻഗണനാക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാകും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോയെന്നും യോഗം വിലയിരുത്തും രാവിലെ ഓൺലൈനായി ആരംഭിച്ച സംവാദം രണ്ട് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്

ലോകം മുഴുവൻ ഒരുമിച്ച് നിന്ന് സ്നേഹസമ്പൂർണ്ണമായ ജീവിതത്തെ മാടിവിളിക്കാൻ കോവിഡ് പ്രതിസന്ധി പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൊച്ചി കാക്കനാട് ജില്ലാ ജയിലിൽ റിമാന്റിലാണ് ശിവശങ്കർ കസ്റ്റഡിയിൽ വാങ്ങി ശിവശങ്കറെ ചോദൃം ചെയ്യുകയാണ് കസ്റ്റംസിന്റെ ലക്ഷ്യം

കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കസ്റ്റഡിയിൽ വിടാനാവില്ലെന്ന് കോടതി

അദ്ദേഹത്തിന് തുടർ ചികിത്സ ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു

ഗണേഷ് കുമാർ എം

എ യുടെ ഓഫീസ് സെക്രട്ടറി പ്രദീപ് കുമാറിനെ പുലർച്ചെ അറസ്റ്റ് ചെയ്തു

നടിയെ ആക്രമിച്ച കേസിലെ മാപ്പൂ സാക്ഷിയെ മൊഴിമാറ്റണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി യെന്നാണ് കേസ് പ്രദീപ് കുമാറിനെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പുറത്താക്കിയതായി ഗണേഷ് കുമാർ അറിയിച്ചു

ഡി എഫിന്റെ പ്രതിഷേധ ധർണ്ണ നാളെ

എഫ് കൺവീനർ എം

എൽ ഫുട്ബോളിൽ ഇന്ന് ജംഷെഡ്പൂർ ചെന്നൈയിൻ എഫ്

ഇന്നലെ ഒഡീഷയെ ഹൈദരാബാദ് എഫ് സി ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പരാജയപ്പെടുത്തിയത്

നാളെ വൈകിട്ടോടെ നിവാർ തമിഴ്നാട്ട് ക്ടീരം തൊടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മൂന്റിറ്റിയിപ്പ് നൽകി തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദ്ദേശ് ്തീരങ്ങൾ കടുത്ത ജാഗ്രതയിലാണ്